സമൂഹ മാധ്യമങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ പരിശോധിക്കാൻ ന് രാജ്യസഭാ എം

ഇന്ത്യയുടെ സൌരഭ് വർമ്മ ഇന്ന് കൊറിയൻ താരം ഹിയോ കാങ് ഹി യെ നേരിടും

ഛത്ര പലാമു ഗുംല ഗർഹ ലെറ്റഹർ ലൊഹദഹ എന്നീ ജില്ലകളിലെ നക്സൽ ബാധിത പ്രദേശങ്ങളിലാണ് വോട്ടെടുപ്പ്

പ്രതിപക്ഷ സഖ്യ കക്ഷികളായ ജെ എം എം കോൺഗ്രസ്സ് ആർ

ഡി എന്നിവർ യഥാക്രമം നാലും ആറും മൂന്നും മണ്ഡലങ്ങളിലാണ് ജനവിധി തേടുന്നത്

ജാർഖണ്ഡിൽ അഞ്ച് ഘട്ടമായാണ് വോട്ടെടുപ്പ്

ഇന്ത്യയുടെ വളർച്ചയുടെ ഭാഗമായി ശ്രീലങ്കയെയും കാണാൻ ആഗ്രഹിക്കുന്നതായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു

വികസന സഹകരണമാണ് ഇന്ത്യ ശ്രീലങ്ക ബന്ധത്തിന്റെ അടിസ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞു സുരക്ഷ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇരു രാജ്യങ്ങളും എല്ലാ മേഖലകളിലും സഹകരണം വർദ്ധിപ്പിക്കണമെന്നും രാഷ്ട്രപതി ആവശ്യപ്പെട്ടു

ശ്രീലങ്കയുടെ ദ്രുതഗതിയിലുള്ള വികസനത്തിന് എല്ലാ സഹായവും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നും ശ്രീ

ഗോതബായ രജപക്സെ നേരത്തേ വിദേശകാര്യമന്ത്രി എസ്

ഇന്ത്യയുമായി ശ്രീലങ്കയ്ക്കുള്ള ബന്ധം കൂടുതൽ ഉയരങ്ങളിലെ ത്തിക്കാനാണ് താത്പര്യമെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് പ്രതികരിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മൂന്ന് പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായാണ് അ്ദ്ദേഹം എത്തുന്നത് ഗവർണർ ആനന്ദി ബെൻ പട്ടേലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രാഷ്ട്രപതിയോടൊപ്പം പരിപാടികളിൽ പങ്കെടുക്കും

ഐ

കമ്പ്യൂട്ടർ ആശയവിനിമയം വിവര സാങ്കേതിക വിദ്യ എന്ന വിഷയത്തിൽ നടക്കുന്ന അന്തർദ്ദേശീയ സമ്മേളനം ശ്രീ രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്യും ഛത്രപതി സാഹുജി മഹാരാജ് സർവകലാശാലയിലെ ആദ്യ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് രാഷ്ട്രപതി നിർവ്വഹിക്കും

കാൺപൂർ നഗർ നിഗം സംഘടിപ്പിക്കുന്ന അനുമോദന പരിപാടിയിലും ശ്രീ രാംനാഥ് കോവിന്ദ് പങ്കെടുക്കും

സുബ്രഹ്മണ്യം

നിക്ഷേപത്തിലും ഉപഭോഗത്തിലും മറ്റും വളർച്ച പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി

പി മാരുടെ അനൌദ്യോഗിക സംഭൂലം രൂപീകരിക്കുമെന്ന് ഉപരാഷ്ട്രപതി എം

കുട്ടിക്കുള് ്വഴി തെറ്റിക്കുന്ന രീതിയിലാണ് നവമാധ്യമങ്ങളുടെ പോക്ക് കുടുംബ സംവിധാനത്തേയും ഇന്ത്യൻ സംസ്കാരത്തെയും വിലകൂറ്ച്ച് കാ്ണിക്കുകയാണ് നവമാധ്യമങ്ങളെന്നും ഉപരാഷ്ട്രപതി പ്രറഞ്ഞു പാർലമെന്റിൽ നടക്കുന്ന പ്രക്ഷുബ്ധമായ കാര്യങ്ങൾ റിപ്പ്മുൾട്ട് ്ചെയ്യാൻ മാധ്യമങ്ങൾ കാണിക്കുന്ന ശ്രദ്ധ വികസന പ്രവർത്തനങ്ങൾ ്കിപ്പോർട്ട് ചെയ്യുന്നതിലും പുലർത്തണമെന്ന് ഉപരാഷ്ട്രപ്തീ പറഞ്ഞു

ഒരു വർഷത്തിനുള്ളിൽ നിയമം പ്രാബല്യത്തിലെത്തിക്കാനാണ് നേരത്തെ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് ഇതിലൂടെ പഴയ ആഭരണങ്ങളും സ്റ്റോക്കുകളും വിറ്റഴിക്കാൻ ആഭരണ ഉൽപ്പാദകർക്കും കച്ചവടക്കാർക്കും ഒരു വർഷം സമയം ലഭിക്കുമെന്നും ശ്രീ

എസ് ഹാൾമാർക്കിങ് രജിസ്ട്രേഷൻ നടത്തിയതായും അദ്ദേഹം പറഞ്ഞു

ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ നടപ്പാക്കിയ പദ്ധതികളുടെ ക്രഡിറ്റ് വൻ പ്രചാരണങ്ങളിലൂടെ സ്വന്തമാക്കാനാണ് ആം ആദ്മി പാർട്ടി ഗവൺമെന്റിന്റെ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു ആം ആദ്മി പാർട്ടി ഭരണത്തെക്കുറിച്ച് പബ്ലിക് പോളിസി റിസർച്ച് സെന്റർ തയ്യാറാക്കിയ പൊള്ളയായ പാത്രങ്ങൾ കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നുവെന്ന് ഗവേഷണ റിപ്പോർട്ട് പുറത്തിറക്കിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെ അദ്ദേഹം പറഞ്ഞു

ഇനി ഒരുത്തരവ് ഉണ്ടാകുന്നതുവരെ മരങ്ങൾ മുറിക്കരുതെന്ന് നിർദ്ദേശിച്ചതായും ശ്രീ

മുംബൈ മെട്രോ റെയിൽ പദ്ധതിയുട്ടി പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമ്മുക്കിം ഇന്നലെയാണ് മുംബൈയിലെ ഓഫീസിൽ ശ്രീ ഉദ്ധ്യപ്പ് താഴ്ക്കറെ ഔദ്യോഗികമായി ചുമതലയേറ്റത്

ഡിസംബർ ഒന്ന് മുതൽ ഈ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ഗതാഗത മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു ഫാസ്റ്റ് ടാഗ് വാഹനങ്ങളിൽ ഘടിപ്പിക്കാനുള്ള സമയം കൂട്ടി നൽകണമെന്ന ആവശ്യം പരിഗണിച്ചാണ് നടപടി ഫാസ്റ്റ് ടാഗ് ഇല്ലാതെ ടോൾപിരിവ് കേന്ദ്രങ്ങളിലെത്തുന്ന വാഹനങ്ങൾ ഫാസ്റ്റ് ടാഗ് ഗേറ്റിലൂടെ പ്രവേശിച്ചാൽ ഇരട്ടി തുക നൽകേണ്ടി വരും

വിവിധ വേദികളിൽ കൌമാര കേരളത്തിന്റെ പ്രതിഭാ വിളയാട്ടം കാണാൻ വൻ ജനാവലിയാണ് എത്തിയത്

പൂഞ്ച് ജില്ലയിൽ ഇന്ത്യൻ ഐസനിക പോസ്റ്റുകൾക്കു നേരെയും ജനവാസ മേഖലകൾക്കു നേളത്യുമാണ് പാക് സൈന്യം പ്രകോപനമില്ലാതെ വെടിയുതിർത്തത്

ഭീകർനെ പൊലീസ് വെടിവച്ചു കൊന്നു ഇന്നലെ നടന്ന സംഭവത്തിൽ മറ്റ് മൂന്ന് പേർക്ക് പരിക്കേറ്റു ഇയാൾ സംഭവസ്ഥവത്ത് വച്ച് തന്നെ മരണപ്പെട്ടതായി യു

ഭീകര വിരുദ്ധ പൊലീസ് മേധാവി നെയിൽ ബാസു വ്യക്തമാക്കി

വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി